ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം മെൽബണിൽ ഗാർബൈൻ മുഗുരുസയും സോഫിയ കെനിനും ഏറ്റുമുട്ടും

വാണിജ്യരംഗത്തും സേവന്രംഗത്തുമുള്ളവർ ആകാംക്ഷയോടെയാണ് ബജറ്റിനെ കാത്തിരിക്കുന്നത് യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നതും സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉണർവേകുന്നതുമായ ബജറ്റെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അഞ്ച് ട്രില്ല്യൺ വളർച്ചയുള്ള സമ്പദ്വ്യവസ്ഥയെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാവും ബജറ്റെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പ്രതികരണം നേരിടുന്നതിനുള്ള മുൻകരുതൽ ബജറ്റിലുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്

വാണിജ്യം കയറ്റുമതി ഈസ് ഓഫ് ഡ്ലൂയിങ് ബിസിനസ് തുടങ്ങിയ പലവിധ മാർഗങ്ങളിലൂടെ അഞ്ച് ട്രില്യൺ വളർച്ച് യുള്ള സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്രെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

അടിസ്ഥാന വിഭാഗങ്ങളുടെ സംരംഭകത്വം ധനസമ്പാദനം എന്നിവയ്ക്കാണ് സർവ്വേ ഊന്നൽ നൽകിയിട്ടുള്ളത്

ബിസിനസ്റ്റ് അനുകൂല നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും വിപണി വ്യാപാരം സുഗമമാക്കൽ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലൂടെയും ഇതു സാധ്യമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു

രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം ഇവർക്കും ലഭിച്ചതായും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം ചരിത്രപരമാണെന്നും അതിലൂടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അഭിലാഷം സഫലമാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതു വിഷയവും ചർച്ചു ചെയ്യുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമ്പോൾ അക്രമാസക്ത പ്രതിഷേധങ്ങൾ അതിനെ തളർത്തുകയാണ് ചെയ്യുന്നതെന്നും ശ്രീ

കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയ പരിഷ്ക്കരണ നടപടികൾ അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ റാങ്കിംഗ് മികച്ചതാക്കിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നത് ഗവൺമെന്റിന്റെ മുൻഗണനാ വിഷയമാണ്

ഇത്തവണ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യയുടെ പങ്കാളിത്ത രാജ്യം

വെങ്കയ്യനായിഡു ഇന്നലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തു ബജറ്റ് സമ്മേളനത്തിൽ രാജ്യസഭാ നടപടികൾ സുഗമമായി നടത്തുന്നതിന് സഹകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി യോഗത്തിൽ അഭ്യർത്ഥിച്ചു വിവിധ വകുപ്പുകളുടെ സബ്മിഷനുകളും മന്ത്രിമാരുടെ ധനാഭ്യർത്ഥനകളും സ്റ്റാൻഡിങ്ങ് കമ്മിറ്റി റിപ്പോർട്ടുകളും പാസ്സാക്കാനുള്ള അവസരമൊരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പൊതുതാൽപ്പര്യമുള്ള ചർച്ചകൾക്ക് സമ്മേളനത്തിൽ ധാരാളം അവസരമുണ്ടാകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു

ഈ മാസം എട്ടിന് നടക്കുന്ന വോട്ടെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവ്വകവുമാക്കാനുള്ള പ്രധാന നടപടികളാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയത് ഡൽഹി തെരഞ്ഞെടുപ്പ് ഓഫീസറും പോലീസ് കമ്മീഷണർമാരും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും നോഡൽ ഓഫീസർമാരും തദ്ദേശ ഭരണ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ചീഫ് സെക്രട്ടറി പോലീസ് കമ്മീഷണർ ആഭ്യന്തര സെക്രട്ടറി ധനസെക്രട്ടറി ഡൽഹി തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടങ്ങിയവരുമായുള്ള പ്രത്യേക യോഗവും ചേർന്നു സ്വതന്ത്രവും സമാധാനപരവും സമ്പൂർണ്ണവും പങ്കാളിത്തവുമുള്ള തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ അറിയിച്ചു എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ

യാത്രക്കാരെ കൂടാതെ രാംമനോഹർ ലോഹ്യ ആശുപത്രിയിൽ നിന്നുള്ള അഞ്ച് ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരനും വിമാനത്തിലുണ്ട് രണ്ടാമത്തെ പ്രത്യേക വിമാനം ഇന്ന് ന്യൂഡൽഹിയിൽ നിന്ന് വുഹാനിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് സൂചന

കേരളത്തിൽ തൃശൂർ മെഡിക്കൽകോളേജിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്

കൊറോണ വൈറസ് ബാധ സംബന്ധിച്ച വ്യാജവാർത്ത പ്രചരിപ്പിച്ച മൂന്നു പേരെ തിരിച്ചറിഞ്ഞതായും ഇവർക്കെതിരെ കേസെടുക്കുമെന്നും സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്

ഇത്തരം സുരക്ഷാ ഉപകരണങ്ങൾ അടിയന്തരമായി ആവശ്യം ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി

ഡിഫൻസ് എക്സ്പോയോടനുബ്പ്സിച്ച് ആദ്യമായി ഇന്ത്യ ആഫ്രിക്ക ഡിഫൻസ് കോൺക്ലേവ് സ്കൂഘടിപ്പിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി അജയ്കുമാർ പറഞ്ഞു ആയിരം കമ്പനികളാണ് ഇത്തവണ എക്സ്പോയ്ക്ക് രജിസ്റ്റർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു

സ് ആ ർ

നാലുമാസത്തിനകം ആദ്യവിക്ഷേപണം നടത്തുമെന്ന് വി

എസ്

ഡെപ്യൂട്ടി ഡയറക്ടർ ഹരിദാസ് ടി

വലിയ വിക്ഷേപണങ്ങൾക്കു പുറമെ വാണിജ്യാവശ്യത്തിനായുള്ള ചെറിയ ഇടത്തര റോക്കറ്റുകളിലേക്ക് ഐ സ്

ആഘോഷങ്ങളോടും അതേ സമയം ബ്രെക്സിറ്റ് വിരുദ്ധ പ്രതിഷേധങ്ങളോടും കൂടി ഇന്നലെ അർധ രാത്രിയായിരുന്നു ചരിത്രസംഭവം

പുരുഷ വിഭാഗത്തിൽ നാളെ സെർബ് താരം ന്യൊവാക് ജോക്കോവിച്ചും ഓസ്ട്രിയയുടെ ഡൊമനിക് തീമും മൽസരിക്കും ്റോജർ ഫെഡററെ കീഴടക്കിയാണ് ജോക്കോവിച്ച് ഫൈനലിൽ ഏത്തിയത്

ഒരു റിപ്പോർട്ട്

അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം നാളെ മൌണ്ട് മാങ്കനൂയിയിൽ ആണ്